പരീക്ഷകളിൽ ഇംഗ്ലീഷിനൊപ്പം മലയാളത്തിലും ചോദ്യം വേണമെന്ന ആവശ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പി എസ്

അധികൃതരുമായി ചർച്ച നടത്തും ഈ ആവശ്യം ഉന്നയിച്ച് വിവിധ സാംസ്കാരിക നായകരും ഭാഷാ സ്നേഹികളും രംഗത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഐക്യ മലയാള പ്രസ്ഥാനം പി എസ് സി